സമ്പൂർണ്ണിലോക്ഡൌൺ വേണ്ടെന്ന് സർവകക്ഷിയോഗം

ചേർക്കണമെന്ന് മുഖ്യമിന്തീ സംസ്ഥാനത്ത് ക്രമസമാധാനം തകർന്നതായി ബി ജെ

ഇ യിൽ നടത്താൻ ഏകദേശ ധാരണ അന്തിമ തീരുമാനം അടുത്ത ആഴ്ച

ഷാൻങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ അംഗ രാജ്യങ്ങളിലെ ആരോഗ്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

അതിനിടെ ഒരു ദിവസത്തിനിടെ കോവിഡ് മുക്തരാകുന്നവരുടെ എണ്ണത്തിൽ റെക്കോഡ് വർദ്ധന

പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അടിയന്തിര മെഡിക്കൽ ആവശ്യങ്ങൾക്കുള്ള യാത്രകൾക്ക് പാസ് ഒഴിവാക്കി

യാത്രക്കാർക്കും വിമാനക്കമ്പനികൾക്കും നഷ്ടം ഉണ്ടാകാത്ത വിധം നിരക്കിന്റെ താഴെത്തട്ടും മേൽത്തട്ടും നിശ്ചയിച്ചാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്

രണ്ട് വർഷത്തിൽ ഒരിക്കൽ പുറത്തിറക്കുന്ന ധനസ്ഥിരത റിപ്പോർട്ടിന്റെ ആമുഖത്തിലാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത് സാമ്പത്തിക നില മെച്ചപ്പെടുത്തി പൂർവസ്ഥിതിയിലെത്തിക്കുന്നതിനായിരിക്കണം ബാങ്കുകൾ പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും ശ്രീ ശക്തികാന്തദാസ് പറഞ്ഞു സാമ്പത്തിക മേഖലയിലെ വെല്ലിവിളികൾ നേരിടുന്നതിന് സർക്കാരുകളും ബാങ്കുകളും പൊതു ഏജൻസികളും കൂട്ടായ പരിശ്രമമാണ് നടത്തുന്നത് ദേശവ്യാപക ലോക്ഡൌണിൽ നിന്നുള്ള ക്രമാഗതമായ തിരിച്ചുവരവിന്റെ സൂചനകളാണ് സാമ്പത്തികരംഗത്ത് പ്രകടമാകുന്നതെന്നും ആർ

ഐ ഗവർണർ അഭിപ്രായപ്പെട്ടു

രോഗം സ്ഥിരീകരിച്ചതിനെക്കാൾ കൂടുതൽ പേർ ഇന്നലെ രോഗമുക്തി നേടി

നാല് മരണങ്ങളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്

മലപ്പുറം ജില്ലയിൽ മൂന്ന് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളും കാസർഗോഡ് ജില്ലയിൽ ആറ്റ് ക്യ്യൂണിറ്റി ക്ലസ്റ്ററുകളും കോഴിക്കോട് ജില്ലയിൽ ഒരു കമ്മ്യൂണിറ്റി ക്ലസ്റ്റ്മാണ് നിലവിൽ ഉള്ളത്

ക്ലസ്റ്ററുകളിലെ നിയന്ത്രണം ശക്തിപ്പെടുത്തണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന സർവ്വകക്ഷി യോഗം അഭിപ്രായപ്പെട്ടു ലോക്ഡൌണിലേക്ക് പോയാൽ വിഷമകരമായ സാഹചരൃമുണ്ടാകുമെന്ന് യോഗത്തിൽ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചു ഇപ്പോൾ ലോക്ഡൌണിലേക്ക് പോകില്ലെന്നും ഈ ആഴ്ച എന്തായാലും ലോക്ഡൌൺ ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കക്ഷി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തായും എല്ലാവരും സഹകരണം അറിയിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു

തന്നെ പിന്തുണയ്ക്കുന്ന എം

രാജസ്ഥാനിലെ നിലവിലെ സ്ഥിതിഗതികളുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശം തേടിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ത്രീരുമാനമെടുക്കാനാവൂ എന്ന് ഗവർണർ അറിയിച്ചു നിയമസഭൂ സ്മ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണർ അനുമതി നൽകുക്യാണെങ്കിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുമെന്ന് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്പുഞ്ഞ്ത് രാജസ്ഥാൻ നിയമസഭയിൽ തൽസ്ഥിതി തുടരാൻ ഐപ്പറ്ക്കോടതി നിർദ്ദേശിച്ചതിനു പിന്നാലെയാണ് ഗെഹ്ലോട്ട് ഗവർണറെ കാണാനെത്തിയത് അതേസമയം സംസ്ഥാനത്തിന്റെ ഭരണഘടനാത്തലവനു മേൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ബി ജെ പി ആരോപിച്ചു

ആകാശവാണി ദൂരദർശൻ വാർത്തകൾ പ്രധാനമന്ത്രിയുടെ കാര്യാലയം വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലിലും പരിപാടി തത്സമയം ലഭ്യമാണ്

ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ തുണച്ചത് ഒലീ പോപ്പിന്റെയും ജോസ് ബട്ലറുടേയും മികച്ച് പ്രകടനമാണ്